എ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ

ഡി എഫ് ഏറ്റെടുത്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ

കക്ഷി രഹിത രിൽ പലരും അപര സ്ഥാനാർത്ഥികളിൽ ചിലരെങ്കിലും നാളെ പത്രിക പിൻവലിച്ചേക്കും അതോടെ സംസ്ഥാനത്തെ മത്സര ചിത്രം പൂർണതയിലെത്തും ആദ്യഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് നാലു ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് പ്രധാന മന്ത്രിയും പ്രതിപക്ഷ നേതാക്കളും നേർക്കു നേർ പോരാട്ടം തുടരു ന്നു നരേന്ദ്രമോദിക്ക് പുറമെ അമിത്ഷാ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പ്രിയങ്കഗാന്ധി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി

പിയുടെയും സമാജ് വാദി പാർട്ടി യുടെയും മുൻനിര നേതാക്കൾ തുടങ്ങിയവർ പ്രചാരണ രംഗത്തു ണ്ട് പരസ്യ പ്രചാരണം ചൊവ്വാഴ്ച സമാപിക്കും

ആൻഡമാനിലും ലക്ഷദ്വീപിലെ ഏകസീറ്റിലും അന്ന് തന്നെയാണ് വോട്ടെടുപ്പ്

വോട്ടെടുപ്പ് ദിവസവും തലേ ദിവസവും രാഷ്ട്രീയ പാർട്ടികൾ അ ച്ചടിമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ് ക മ്മീഷൻ നിരോധിച്ചു പരസ്യങ്ങൾ നൽകുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി തേടിയിരിക്കണം അനധികൃത പ രസ്യങ്ങൾ ഇലക്ഷൻ പ്രക്രിയയെ വികലമാക്കുമെന്ന് കമ്മീഷൻ അ ഭിപ്രായപ്പെട്ടു ഇത്തരം പരസ്യങ്ങൾ നൽകുന്നതു വഴി ഉണ്ടാകു ന്ന പ്രശ്നങ്ങൾക്ക് ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികൾക്കോ പാർട്ടികൾ ക്കോ വിശദീകരണത്തിനുള്ള അവസരം ലഭിക്കില്ല

കോഴിക്കോട് മലപ്പുറം ക ണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിലെ ചില ബൂത്തുകൾ ഇടതുപ ക്ഷ തീവ്രവാദ പ്രശ്നമുള്ള ബൂത്തുകളായി പോലീസ് കണ്ടെത്തി യിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂരിലെ എൻ

എ സ്ഥാനാർത്ഥി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ അറിയിച്ചു അതേ തുടർന്നാണ് ജില്ലാ കലക്ടർ നോട്ടീസ് നൽകിയത് ഇതിൽ ഉചിത നടപടിയെടുക്കാൻ കലക്ടർക്ക് അധികാരമുണ്ടെന്ന് ടിക്കാറാംമീണ തിരുവനന്തപുരത്ത് പറഞ്ഞു തൃശൂരിലെ എൻ

എ സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ പെരുമാറ്റച്ചട്ട ലംഘന നോട്ടീസിന് പാർട്ടി മറു പടി നൽകുമെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധ രൻപിള്ള പറഞ്ഞു അയ്യപ്പന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെ ങ്കിൽ അത് തെറ്റാണ് പ്രസംഗത്തിൽ അയ്യപ്പന്റെ പേര് പരാമർശി ക്കുന്നതിൽ തെറ്റില്ലെന്നും ശ്രീധരൻപിള്ള സ്വകാർ്യ ചാനലിനോട് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പ്രസംഗത്തിൽ ഉറച്ചു നിൽക്കുന്നതായും തൃശൂരിലെ എൻ

തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നോട്ടീസിന് പാർട്ടി ഉടൻ മറുപടി നൽകും ഇഷ്ടദേവന്റെ പേര് പറയാൻ പാടില്ലെന്നത് ഗതികേടാണെന്ന് അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ശബരിമല അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് സ്ഥാനാർത്ഥിക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ ടി വി അനുപമ നോട്ടീസ് നൽകിയിരു ന്നു ഒളിക്യാമറാ വിവാദത്തിൽ എം കെ രാഘവൻ എം പിയുടെ മൊഴി ഇന്നോ നാളെയോ രേഖപ്പെടുത്തുമെന്ന് റിപ്പോർട്ട് കോഴിക്കോട് അസിസ്റ്റന്റ് പൊലീസ് കമ്മീഷണർ വാഹിദിനാണ് കേസിന്റെ അന്വേഷണച്ചുമതല കോൺഗ്രസ് അധ്യക്ഷനെതിരായ തെരഞ്ഞെടുപ്പ് പോരാട്ടം എൽ ഡി എഫ് ഏറ്റെടുത്തായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറി യിച്ചു

എയുടെയും എൻ

എയുടെയും നവ ഉദാരവത്കരണ നയങ്ങൾക്കെതിരെ ബദൽ നയമാണ് ഇടതു പക്ഷം ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ അഴി മതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു വെന്നും പിണറായി വിജയൻ അവകാശപ്പെട്ടു

ഇതിൽ പത്തു ലക്ഷത്തി നാൽപതിനായിരത്തി ഇരുപത്തിയെട്ട് പേർ സ്ത്രീകളും ഒമ്പത് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി നാനൂറ്റി ഇരു പത്തിയെന്ന് പേർ പുരു ഷ ന്മാരു മാണ് അഞ്ച് ട്രാൻസ്ജെൻഡർമാരും വോട്ടർ പട്ടികയിലുണ്ട് കാസർകോട് ജില്ലയിൽ പത്തു ലക്ഷത്തി പതിനൊന്നായിരത്തി മുപ്പത്തിയൊന്ന് പേരാണ് വോട്ടർ പട്ടികയിൽ ഇവരിൽ അഞ്ചുല ക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി നാൽപത്തി രണ്ട് പേർ സ്ത്രീകളും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എൺപത്തി എട്ട് പേർ പുരുഷന്മാരുമാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഒരാൾ മാത്രമാണ് പട്ടികയിൽ ഉൾപ്പെട്ടത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥിന്റെ അടുത്ത ബന്ധു ക്കളുടെയും മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വീടുകളിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ്

അനധികൃതമായി സൂക്ഷിച്ച രേഖകളും പണവും കണ്ടെത്തിയാതായാണ് റിപ്പോർട്ട് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് തമിഴ്നാട് മുൻമുഖ്യ മന്ത്രി എം

ആറിന്റെ പേര് നൽകി

സ്റ്റേഷന്റെ പേര് മാറ്റി ചീഫ് സെക്രട്ടറി ഗിരിജാ വൈദ്യനാഥൻ ഇന്നലെ ഉത്തരവിറക്കി പ്പേര് മാറ്റാൻ തെര ഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയതിനെ തുടർന്നാണ് നടപ ടി എടപ്പാളിൽ നാടോടി പെൺകുട്ടിയായ പത്ത് വയസുകാരിയെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാളെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി പൊലീസ് അറസ്റ്റ് ചെയ്തു ആക്രി സാധനങ്ങൾ പെറുക്കുന്നതിനിടെ പ്രാദേ ശിക രാഷ്ട്രീയ നേതാവാണ് കുട്ടിയെ മർദ്ദിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു

പൊന്നാനി താലൂക്ക് ആശു പത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലി സന്ദർശിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നിഷ്ക്രി യത്വം മൂലമാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ വർധിക്കു ന്നതെന്ന് ചെന്നിത്തല ആരോപിച്ചു തൊടുപുഴയിൽ മർദനമേറ്റ് ഏഴു വയസ്സുകാരൻ മരിച്ച കേസിൽ അമ്മയെ പ്രധാന സാക്ഷിയാക്കുന്ന കാര്യത്തിലും കേസെടുക്കുന്ന കാര്യത്തിലും പൊലിസ് നിയമോപദേശം തേടും കുട്ടിയുടെ അമ്മ ക്കെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല

മരിച്ച കുട്ടിയുടെ നാലുവയസ്സുകാരനായ അ നുജനെ വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ട് കുട്ടിയുടെ അച്ഛന്റെ പിതാവ് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് അപേക്ഷ നൽ കി കുട്ടിയുടെ ആരോഗ്യ സ്ഥിതി ഉൾപ്പെടെ കാര്യങ്ങളിൽ ചൈൽ ഡ് വെൽഫെയർ കമ്മിറ്റി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ വൈകീട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡൽഹി ക്യാപിറ്റൽസിനെയും രാത്രി എട്ടിന് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത് നൈറ്റ് റൈഡേ ഴ്സിനെയും നേരിടും സൂപ്പർകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

കോഴിക്കോട് ജില്ലാ പുരുഷവനിതാ പഞ്ചഗുസ്തി ചാംപ്യൻഷിപ്പ് ഇന്ന് നടക്കും വൈകീട്ട് മൂന്നിന് ഫറോക്ക് ചുങ്കത്താണ് ചാംപ്യൻഷിപ്പ്

പുനഃപരീക്ഷ തീയതി പിീട് പ്രഖ്യാപിക്കുമെ് സർലകലാശാല അറിയിച്ചു തനത് മാപ്പിള കലാ സാഹിത്യ വേദി മൂന്നാംവാർഷികവും പ്രതിനിധിസംഗമവും വിവിധമേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് അവാർഡ് വിതരണവും ഇന്ന് കോഴിക്കോട് ടൌൺഹാളിൽ നടക്കും പാട്ടൊരുമ എന്ന പരിപാടി വൈകീട്ട് ആറിന് ആരംഭിക്കും കാൽകിലോ കഞ്ചാവുമായി തിരുവനന്തപുരം സ്വദേശികളായ ആ നന്ദ് സൂര്യബാല എന്നിവരെ എക്സൈസ് കുമളി ചെക്ക്പോസ്റ്റിൽ പിടികൂടി കൊടൈക്കനാലിൽ പോയിവരികയായിരുന്ന ഇവർ ക മ്പത്തുനിന്ന് വാങ്ങിയ കഞ്ചാവ് കൂട്ടുകാർക്ക് നൽകാനായിരുന്നു വെന്ന് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി ഭക്ഷ്യ എണ്ണകളിലെയും വനസ്പതിയിലെയും ട്രാൻസ്ഫാറ്റിന്റെ അളവ് കണ്ടെത്താൻ സാമ്പിൾ ശേഖ്രിക്കുന്ന രീതികളെപറ്റി ഭക്ഷ്യ സുരക്ഷാ നിലവാര അതോറിറ്റിയും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേ റ്റും സംയുക്തമായി കോഴിക്കോട്ട് ശില്പശാല സംഘടിപ്പിച്ചു ട്രാൻ സ്ഫാറ്റിന്റെ അളവ് കൂടുന്നത് ജീവിത ശൈലീ രോഗങ്ങൾക്കും ഹൃദയ രോഗങ്ങൾക്കും കാരണമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാ ണ് ശിൽപശാല നടത്തിയത് ഇടുക്കി രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് സവാരിക്ക് വീ ണ്ടും നിരോധനം ഏർപ്പെടുത്തി ഇന്നലെ രാമക്കൽമേട്ടിൽ ഓഫ് റോഡ് ജീപ്പ് മറിഞ്ഞ് ഒരു വിനോദസഞ്ചാരി മരിച്ച സാഹചര്യത്തി ലാണ് ഡിടിപിസിയുടെ നടപടി കുരുവിക്കാനത്ത് ജീപ്പ് കൊക്കയി ലേക്ക് മറിഞ്ഞ് കുന്നംകുളം ഗുഡ്ഷെപ്പേർഡ് ഐടിഐ വിദ്യാർഥി ശ്രീജിത്താണ് മരിച്ചത് എട്ട് പേർക്ക് പരിക്കേറ്റു ഇവർ നെടുങ്ക ണ്ടത്തും തൂക്കുപാലത്തും ആശുപത്രിയിൽ ചികിത്സയിലാണ്

പ്രാദേശിക പത്രപ്രവർത്തകൻ കൂടി യായിരുന്നു ജയദേവൻ മലപ്പുറം കോട്ടക്കൽ പറപ്പൂർ ഹയർ സെക്കന്റി സ്കൂളിന് സമീപം റോഡപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു ഇന്നലെ രാത്രിയു ണ്ടായ അപകടത്തിൽ പറപ്പൂർ സൂപ്പി ബസാർ സ്വദേശി ഷിഹാബു ദ്ദീൻ ആണ് മരിച്ചത്